എസ് ഭീകരൻ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി പോലീസ്

വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഫേസ്ബുക്കിൽ മലയാളത്തിൽ രേഖപ്പെടുത്തിയ കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വിശദവിവരങ്ങളുമായി ജോസ്ന ജോസ്

ഇന്ത്യയിൽ ആദ്യത്തെ പി

പി അടിസ്ഥാനത്തിലുളള എയർ പോർട്ട് കൊച്ചിയിലാണ് പ്രവർത്തനം തുടങ്ങിയത് കണ്ണൂർ വിമാനത്താവളവും ഇതേ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ വളരെ വിജയകരമായ രണ്ട് വിമാനത്താവളങ്ങൾ നടത്തുന്ന കേരള സർക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം പൊതു സ്വകാരൃ മേഖലകളുടെ പങ്കാളിത്തോടെ സ്വകാര്യവൽക്കരണത്തിന് കേരള സർക്കാർ എതിരാണെങ്കിൽ പിന്നെ എന്തിനാണ് ലേലത്തിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം ചോദിച്ചു

പി മോഡൽ ആക്കിയത് കോൺഗ്രസ് സർക്കാരാണെന്നും അദ്ദേഹം വിശദമാക്കി

ട്ര വർഷത്തെ പാട്ട കാലാവധിക്കു ശേഷം വിമാനത്താവളങ്ങൾ അതോറിട്ടിക്ക് തന്നെ തിരിച്ചു ലഭിക്കും ഇതിനു പുറമേ കസ്റ്റംസ് സെക്യൂരിട്ടി ഇമിഗ്രേഷൻ ആരോഗ്യസേവനം വാർത്താവിനിമയം ഗതിനിയന്ത്രണം തുടങ്ങിയ അധികാരങ്ങൾ തുടർന്നും സർക്കാർ ഏജൻസികൾക്കായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി

നെല്ല് അടക്കമുള്ള വിളകളുടെ വെങ്കയ്യ കൃഷിയിൽ മുൻവർഷത്തേക്കാൾ വലിയ പുരോഗതിയാണ് ഇക്കൊല്ലം കൈവരിച്ചിരിക്കുന്നത്

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സ്റ്റ്രിക്ടറി മാർക്ക് അയച്ച കത്തിലാണ് ഈ നിർദേശം ചില സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയ സാ ഹചര്യത്തിലാണ് കേന്ദ്രം നിലപാട് വൃക്തമാക്കിയത്

പഞ്ചാബിൽ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അഞ്ച് പാക് ഭീകരർ ബി എസ്

നിയന്ത്രണരേഖയിലെ ഖേംകാരൻ സെക്ടറിലാണ് സംഭവം

ഭീകരിനിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയതായും പോലീസ് വ്യക്തമാക്കി

രാജ്യത്തെ കോവിഡ് കേസുകൾ കൂടുകയാണ് അത് ആശങ്കയുണർത്തുന്ന കാര്യമാണെങ്കിലും മരണനിരക്ക് വളരെ കുറവാണെന്നത് ആശ്വാസം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു

ഇന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്

പിയും ജെ

അദ്ദേഹത്തിന്റെ ഭാര്യ രൂപി സോറനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് ആശംസകൾ നേർന്നു

ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ ടെണ്ടർ വിളിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ഇന്നലെയാണ് മ്യൂസിയം പള്ളിയാക്കി മാറ്റിയ ഉത്തരവിൽ എർദോഗാൻ ഒപ്പ് വെച്ചത്